ഐ എ അറസ്റ്റ് ചെയ്തു

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗുളൂരുവിന് ജയം

അതിനാൽ പരിഷ്കരിച്ച ജനക്ഷേമം ബഹുരാഷ്ട്രവാദം ലോകത്തിന് ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രുമ രാജ്യസഭാ ഉപാധ്യക്ഷനെതിരായ പ്രതിപക്ഷത്തിന്റെ മോശം പെരുമാറ്റം അപമാനകരവും നിരുത്തരവാദപരവുമാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു രാജ്യ സഭയിൽ രണ്ട് കാർഷിക ബില്ലുകൾ പാസാക്കാൻ ഗവൺമെന്റിനെ അനുവദിക്കാതിരിക്കുകയായിരുന്നു പ്രതിപക്ഷ അജണ്ടയെന്ന് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു സഭയിൽ ഗവൺമെന്റിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കർഷകരുടെ കാര്യത്തിൽ കോൺഗ്രസ് ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നതെന്ന് രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തി പാർലമെന്റ് വർഷകാല സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനമെടുത്തിട്ടില്ലെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു രുദ അതേ സമയം രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കെ കെ രാഗേഷ് എളമരം കരീം എന്നിവരുൾപ്പെടെ എട്ട് എം പിമാർ പാർലമെന്റ് പരിസരത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ് നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഇവരെ സന്ദർശിച്ചു രുമ പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലുകളിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് രണ്ട് കോടി കർഷകർ ഒപ്പിട്ട നിവേദനം തീരുമാനിച്ചു രാഷ്ട്രപതിക്ക് സമർപ്പിക്കുമെന്ന് മുതിർന്ന പാർട്ടി നേതാക്കളുടെ ഓൺലൈൻ യോഗത്തിന് ശേഷം അഹമ്മദ് പട്ടേൽ ഡൽഹിയിൽ അറിയിച്ചു

പിമാരെ രാജ്യസഭയിൽ നിന്ന് സസ്പെന്റു ചെയ്ത നടപടി ജനാധിപത്യത്തിനെതിരായ കടന്നാക്രമണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കർഷക ജീവിതം എല്ലാ കാലത്തും ദുരിതമാക്കാനുള്ള നിയമ നിർമാണമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു

ഒരു കോടിയിൽ പരം രൂപയാണ് കേരളത്തിൽ വിതരണം ചെയ്തത്

ആരോഗ്യപ്രവർത്തകന് നഷ്ടപരിഹാരവും നൽകണം

വിശദാംശങ്ങളുമായി ജഷിത കുമാരി

സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും പേർ ഒരു ദിവസം രോഗമുക്തരാവുന്നത്

കൊല്ലം തൃശൂർ പാലക്കാട് കോട്ടയം ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ നൂറിലധികവും ഇടുക്കി വയനാട് പത്തനംതിട്ട ജില്ലകളിൽ നൂറിൽ താഴെയുമാണ് രോഗബാധ ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോ

ഡി എം വി

വിനോദിന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കലക്ടർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചത്

കളക്ടറോടൊപ്പമുള്ള എട്ട് ജീവനക്കാർക്കും കോവിഡ് പോസിറ്റീവായിരുന്നു ദേദ കോവിഡ് വ്യാപനം തടയാൻ വാർഡ് തലങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയാണ് ഏക പോംവഴിയെന്നു മന്ത്രി ജെ

ഒരു മണ്ഡലത്തിൽ ഒരു കോവിഡ് ചികിത്സാകേന്ദ്രം ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ രാജുവും പറഞ്ഞു കൊല്ലം ജില്ലാതല ഉന്നതതല ഉദ്യോഗസ്ഥരുടെ ഓൺലൈൻ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ രുമ കണ്ണൂർ ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നത് കുറഞ്ഞു

വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

ഏഴുമരണവും നഗരസഭയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

ഐ

കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ കെ കെ ഷുഹൈബ് ലഷ്കറെ ത്വയ്ബ പ്രവർത്തകനായ ഉത്തർപ്രദേശ് സ്വദേശി ഗുൽനവാസ് എന്നിവരാണ് പിടിയിലായത് ഇവർക്കെതിരെ എൻ ഐ

ഷുഹൈബിനെ ചോദ്യം ചെയ്യലിനായി ബെങ്കളൂരുവിലേക്ക് കൊണ്ടുവരുമെന്ന് ജോയന്റ് കമ്മീഷണർ സന്ദീപ് പാട്ടീൽ അറിയിച്ചു

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തകർപ്പൻ ജയം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനെ പത്ത് റൺസിനാണ് അവർ തോൽപ്പിച്ചത്

ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും

ശക്തമായ മഴക്കു സാധ്യതയുള്ളതിനാൽ കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും

മത്സ്യബന്ധനത്തിനു പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രുഭ കാസർകോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി

മലയോര മേഖലയിൽ ഇടവിട്ട് പെയ്യുന്ന കനത്ത മഴയും കാറ്റും മഞ്ഞും തുടരുകയാണ്

അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് ശക്തമാണ്

കൊയിലാണ്ടി താലൂക്കിൽ നാല് കുടുംബങ്ങളേയും വടകര താലൂക്കിൽ അഞ്ച് കുടുംബങ്ങളേയും ബന്ധുവീടുകളിലേക്ക് മാറ്റിപാർപ്പിച്ചു ദേദ സ്പീക്ക് അപ് കേരള മൂന്നാംഘട്ട സമരപരിപാടിയുടെ ഭാഗമായി യു ഡി എഫ് പ്രവർത്തകർ ഇന്ന് സെക്രട്ടറിയേറ്റിനും ജില്ലാ കലക്ട്രേറ്റുകൾക്കും മുന്നിൽ സത്യാഗ്രഹം നടക്കുമെന്ന് കൺവീനർ ബെന്നി ബെഹനാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷനിലെ കോഴ പ്രളയത്തട്ടിപ്പ് പിൻവാതിൽ നിയമനം ഗവൺമെന്റിന്റെ അഴിമതികൾ എന്നിവ സി ബി ഐ അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹമെന്നും ബെന്നിബെഹനാൻ പറഞ്ഞു രുമ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനായി വിശദപഠനം ഇന്ന് ആരംഭിക്കും

ദേദ മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ ഇന്നലെ പുലർച്ചെ ഉണ്ടായ സ്ഫോടനത്തിൽ രണ്ടു അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ മിനിസ്റ്റീരിയൽ അന്വേഷണത്തിന് എറണാകുളം ജില്ലാ കലക്ടർ ഉത്തരവിട്ടു

തഹസിൽദാറുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേന്നോത്തിന്റെ സംസ്കാര ചടങ്ങ് ഇന്ന് ചേർത്തലയിൽ നടക്കും ഭൌതികശരീരം ജപ്പാനിൽ നിന്നും ഇന്നലെ രാവിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചു